ഗുണഭോക്താക്കൾക്ക് അധിക ഭക്ഷ്യധാനൃം അനുവദിക്കാൻ ത്രീരുമാനിച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗം

ക്രിസോസ്റ്റം വലിയ മെത്രാപൊലീത്തയ്ക്ക് നാടിന്റെ വിട സംസ്ക്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് മൂന്നിന്

ആകാശവാണി

ബ്രിട്ടൻ അയർലന്റ് റൊമാനിയ റഷ്യ യു എ

കോവിഡ് കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനാണ് നടപടിയെന്ന് ജമ്മു ഡിവിഷണൽ കമ്മിഷണർ അറിയിച്ചു

കോവിഡിനെ നിയന്ത്രിക്കാനുള്ള ശാശ്വത മാർഗ്ഗാട്ട് വിവാക്സിനേഷനാണെന്നും ഇതിനെതിരെ ഉയരുന്ന വ്യാജ വാർത്ത്കൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹും കൂട്ടിച്ചേർത്തു ഭൌമ രാഷ്ട്രീയ മാറ്റങ്ങൾ കോവിഡ് പ്രവണതകളെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ്പ്രതിരോധം സുതാര്യത വിശ്വാസൃത എന്നിവ ഉറപ്പാക്കി നയ്പരമായി ഇതിനെ നേരിടാനാവണമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും പങ്കെടുത്ത് സംസാരിച്ചു

കൃഷി ശാസ്ത്രം സാങ്കേതികവിദ്യ ഊർജ്ജം വിദ്യാഭ്യാസം ആരോഗ്യം പരമ്പരാഗത വൈദ്യശാസ്ത്രം വിനോദ സഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു ആഗോള സഹകരണവും ഐകൃദാർഢ്യവുമാണ് കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ സുപ്രധാനമെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി

ആയിരക്കണക്കിന് ഓക്സ്ിജൻ ജനറേറ്ററുകൾ റെസ്പിറേറ്ററുകൾ മരുന്നുകൾ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര വൈദ്യ സഹായങ്ങൾ വരുംദിവസങ്ങളിലും ഇന്ത്യക്ക് കൈമാറുമെന്ന് ഇസ്രയേൽ അംബാസഡർ റോൺമാൽക്ക തന്റെ സന്ദേശത്തിൽ പറഞ്ഞു

കോവിഡ് വ്യാപനത്തിന്റെ സാഹചരൃത്തിൽ ഡോക്ടർമാരുടെ സമൂഹം ടെലി കൺസൾട്ടേഷൻ വഴി രോഗികൾക്ക് സേവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് നിതി ആയോഗ് അംഗം ഡോ

കോവിഡ് രോഗികളുടെ ചികിത്സാ സൌകര്യം കാര്യക്ഷമമാക്കുന്നതിന് ഓക്സിജൻ കോൺസെന്റേറ്റർ പ്ലാന്റ സഹായിക്കും

പഠനം കഴിഞ്ഞ മെഡിക്കൽ വിദ്യാർഥികളെ താൽക്കാലിക രജിസ്ട്രേഷൻ നൽകി കൊവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കും